കടുത്ത മത്സരം നടന്ന മഞ്ചേശ്വരത്ത് ഉയർന്ന പോളിംഗ്

രാംനാഥ് കോവിന്ദ് ജപ്പാനിലെത്തി

പ്രതിരോധ കൌൺസിലിന്റെ അംഗീകാരം

സംസ്ഥാനത്ത് കനത്ത മഴ തുടരും

ഇന്ന് റെഡ് അലർട്ട്

വട്ടിയൂർക്കാവ് കോന്നി അരൂർ എറണാകുളം മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെ നടന്ന വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു

മഞ്ചേശ്വരത്ത് പി

അബ്ദുൾ റസാഖിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്

മുരളീധരൻ അടൂർ പ്രകാശ് എ

ആരിഫ് ഹൈബി ഈഡൻ എന്നിവർ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് വട്ടിയൂർക്കാവ് കോന്നി അരൂർ എറണാകുളം മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്

ബിജെപി ശിവസേന സഖ്യവും കോൺഗ്രസ്സ് എൻ സി

മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കോൺഗ്രസ്സിലെ അശോക് ചവാൻ പൃഥിരാജ് ചവാൻ തുടങ്ങിയവരാണ്മത്സരരംഗത്തുണ്ടായിരുന്ന പ്രമുഖർ വോട്ടെടുപ്പിനായി കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്

ഭരണകക്ഷിയായ ബിജെപി യ്ക്ക് പുറമെ കോൺഗ്രസ്സും ഇന്ത്യൻ നാഷണൽ ലോക്ദളുമാണ് പ്രധാന കക്ഷികൾ ന്യൂസ് ഡസ്ക് ആകാശവാണി

ഫിലിപ്പൈൻസ് സന്ദർശനത്തിന് ശേഷമാണ് രാഷ്ട്രപതി ജപ്പാനിലെത്തിയത് ഇന്ന് അദ്ദേഹം ജപ്പാന്റെ നിയുക്ത ചക്രവർത്തിയുടെ സ്ഥാനാരോഹണ ചടങ്ങിലും പങ്കെടുക്കും

മേയ്ക്ക് ഇൻ ഇന്ത്യാ പദ്ധതിയുടെ കീഴിൽ തദ്ദേശീയമായി രൂപകല്പന ചെയ്ത് നിർമ്മിച്ച പ്രതിരോധ ഉപകരണ്ങ്ങളാണ് വാങ്ങുന്നത് മൂന്നു പ്രോജക്ടുകൾക്കാണ് കൌൺസിൽ അനുമതി നൽകിയത്

എസ് ഇന്ത്യ തന്ത്രപ്രധാന പങ്കാളിത്ത ഫോറം അംഗങ്ങൾ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ചെയർമാന്റെ അദ്ധ്യക്ഷതയിലാണ് അംഗങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ടത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ ഫോറം പ്രകടിപ്പിച്ച ആത്മവിശ്വാസത്തിന് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു വെല്ലുവിളികളെ തരണം ചെയ്യാനുള്ള ഇന്ത്യൻ യുവതയുടെ കഴിവിനെ പ്രധാനമന്ത്രി പ്രത്യേകം പരാമർശിച്ചു

പ്രധാനമന്ത്രിയുടെ റഷ്യാ സന്ദർശനത്തിന്റെ തുടർച്ചയായുള്ള വ്യാപാര ചർച്ചകളാണ് ശ്രീ

മിക്ക ജില്ലകളിലെയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് അതതുമേഖലകളിൽ നിന്നുള്ളവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കനത്ത മഴ രണ്ടു ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ ന്ടിരീക്ഷണ കേന്ദ്രം അറിയിച്ചു സംസ്ഥാനത്ത് ഇന്ന് അഞ്ച് ജില്ലകളിൽ റെഡ്ട് അല്ലർട്ടും എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്

അട്ടപ്പാടിയിൽ മണ്ണിടിഞ്ഞു ഗതാഗതം തടസ്സപ്പെട്ടു തൃശൂർ ജില്ലയിൽ എടത്തുരുത്തി കയ്പമംഗലം പടിഞ്ഞാറൻ മേഖല പെരിഞ്ഞനം കിഴക്കൻ മേഖല എസ്

കനത്ത മഴയെ തുടർന്ന് കൊച്ചി നഗരത്തിൽ ഉണ്ടായ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അടിയന്തര നടപടിക്ക് തുടക്കമായി

ജില്ലാ കളക്ടർ എസ്

കണയന്നൂർ താലൂക്കിലെ എളംകുളം പൂണിത്തുറ എറണാകുളം ഇടപ്പള്ളി നോർത്ത് ഇടപ്പള്ളി സൌത്ത് ചേരാനെല്ലൂർ തൃക്കാക്കര വില്ലേജുകളെയാണ് മഴ അതിരൂക്ഷമായി ബാധിച്ചത്

കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ എറണാകുളം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്

സംസ്ഥാന അടിയന്തിരഘട്ട കാര്യനിർവഹണ കേന്ദ്രം പൂർണ്ണ സജ്ജമായിരിക്കാൻ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ആഭ്യന്തര അഡീ ചീഫ് സെക്രട്ടറിയെ സംസ്ഥാന ഇൻസിഡന്റ് കമ്മീഷണറായി യോഗ്ലൂ ചുമതലപ്പെടുത്തി

ഹൈക്കോടതി സമുച്ചയത്തിലാണ് പരിപാടി

കേന്ദ്രഗവൺമെന്റിന്റെ കിഴക്കൻ നയത്തിലൂന്നി അസമിന് അയൽരാജ്യങ്ങളുമായി മികച്ച വ്യാപാര ബന്ധം സ്ഥാപിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം

നിലവിലെയും മുമ്പത്തെയും പ്രസിഡന്റുമാർ നിയമജ്ഞർ എന്നിവരുടെയും ശമ്പളം കുറയ്ക്കും പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കില്ലെന്നും പ്രധാനമന്ത്രി സാദ് ഹൈരിരി പറഞ്ഞു നികുതി വർധനവിനെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് ലബനനിൽ പ്രക്ഷോഭം തുടങ്ങിയത്

സി ലോക ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ പരമ്പര വിജയത്തിനിരികിൽ

മധ്യപ്രദേശും കർണാടകയും തമ്മിലുള്ള മത്സരത്തിൽ ജയിക്കുന്നവരുമായി വനിതാവിഭാഗം ഏറ്റുമുട്ടും